മുന്നേറ്റം

ലോകരാഷ്ട്രങ്ങൾ ഐക്യൂര്യാഷ്ട്രസംഘടനയുടെ സമ്പൂർണ്ണ പരിവർത്ത്നും ആഗ്രഹിക്കുന്നതായി ഷാങ്ഹായി സഹിക്ര്ണ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഐപിഎൽ ഫൈനലിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

തെരഞ്ഞെടുപ്പിലെ സമ്പൂർണഫലം രാത്രി വൈകിയേ പുറത്തു വരികയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ജെഡിയു എംപി ബൈദൃനാഥ് പ്രസാദ് മഹാതോ അന്തരിച്ചതിനെ തുടർന്നാണ് വാല്മീകി നഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബൈദ്യനാഥ് പ്രസാദ് മഹാതോയുടെ മകനാണ് സുനിൽകുമാർ

എട്ട് സീറ്റുകളിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ബിഎസ്പിയും മുന്നീലാണ് ഉത്തർപ്രദേശിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഫലം പ്രഖ്യാപിച്ച് രണ്ട് സീറ്റുകളിൽ വിജയിച്ച ബിജെപി നാലിടത്ത് മുന്നിലാണ്

ഗുജറ്റ്റ്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന എട്ട് മണ്ഡലങ്ങളിൽ ആറിടത്തും വിജയിച്ച ബിജെപി ബാക്കിയുള്ള രണ്ട് സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു ഒഡിഷയിലെ രണ്ടു സീറ്റുകളിൽ ബിജു ജനതാദൾ മുന്നിൽ നിൽക്കുന്നു തെലങ്കാനയിലെ ഒരു സീറ്റിൽ ബിജെപിക്കാണ് വിജയം

ജാർഖണ്ഡിലെ രണ്ടു സീറ്റുകളിൽ ഒന്നിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച വിജയം നേടി മറ്റേ സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു

നാഗാലാൻഡിലെ രണ്ടു സീറ്റുകളിൽ ഓരോന്നിൽ വീതം എൻ

പിയും സ്വതന്ത്ര സ്ഥാനാർഥിയും വിജയം നേടി

ഇരുപതാമത് ഷാങ്ഹായി സഹകരണ ശുച്ചകോടിയെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബ്ലോക്ന് ചെയ്യുകയായിരുന്നു അദ്ദേഹം

മഹാമാരി മൂലം പ്രതിസന്ധിയിലായ ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസംഘടനയുടെ സമ്പൂർണ്ണ പരിവർത്തനം ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ രാജ്യം എന്ന നിലയിൽ മഹാമാരിക്ക് എതിരായ പോരാട്ടത്തിൽ മാനവരാശിയെ മുഴുവൻ സഹായിക്കുന്നതിന് ഇന്ത്യ അതിന്റെ പൂർണ ശക്തി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെ എട്ട് അംഗ രാജ്യങ്ങളിലെയും നാല് നിരീക്ഷക രാജ്യങ്ങളുടെയും തലവൻമാരും ഉച്ചുകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്

യു കൃാമ്പസിൽ സ്ഥാപിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയുടെ അനാച്ഛാദ്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മറ്റന്നാൾ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിക്കും

ജനങ്ങൾ എല്ലാ പൊതുപരിപാടികളിൽ നിന്നും വിട്ട് നിൽക്കണമെന്ന് അധികൃതർ അറിയിച്ചു

അന്തരീക്ഷ ഗുണനിലവാരം മോശമായി തുടരുന്ന നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇത് ബാധകമായിരിക്കും എന്ന് ട്രിബ്യൂണൽ ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ അധൃക്ഷനായ ബെഞ്ച് വൃക്തമാക്കി

കോഴിക്കോട് തൃശൂർ മലപ്പുറം ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ഡിസ്ചാർജ് ചെയ്തതിനുശേഷം ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ വ്യായാമ മുറകൾ ആരംഭിക്കാവുന്നതാണ് നെഞ്ചുവേദന കിതപ്പ് ക്ഷീണം തലകറക്കം നേരിയ തലവേദന എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വ്യായാമം നിർത്തേണ്ടതാണ്

പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന അമേരിക്കയിൽ ഇന്നലെ മാത്രം ഒന്നേകാൽ ലക്ഷത്തിലധികം പേർക്ക് കൊവിഡ് സ്ഥിരീകരിച്ചു ഇറ്റലി ഫ്രാൻസ് തുടങ്ങി വിവിധ യൂറോപ്യൻ രാജൃങ്ങളിലും പ്രതിദിന രോഗികളുടെ എണ്ണം ഉയർന്ന നിരക്കിലാണ്

നിലവിൽ അഞ്ചു ലക്ഷത്തി അയ്യായിരത്തോളം പേർ ചികിത്സയിലുണ്ട്

ഇതേതുടർന്ന് റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ആണ് കഴിഞ്ഞമാസം പരാതി നൽകിയത്

പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസ് അഞ്ചാമത് ഐപിഎൽ കിരീടം ലക്ഷ്യമിട്ടാണ് കളിക്കുന്നത്

ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഐപിഎൽ പതിമൂന്നാം സീസണാണ് ഇന്ന് തിരശ്ശീല വീഴുക